കാലാവസ്ഥാ വൃതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മാലിന്യനിർമ്മാർജ്ജനം ശുദ്ധ ഊൌർജ്ജം എന്നിവ ശക്തിയേറിയ ആയുധങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശുദ്ധമായ ഊർജ്ജം മാലിന്യമുക്തമായ പ്രദേശങ്ങൾ എന്നിവയ്ക്ക് സുപ്രധാന പങ്കു വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

ഇത് വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതായും ആദ്ദേഹം അറിയിച്ചു

വിഹിതം പൂർണ്ണമായും ഫലപ്രദമായും വിനിയോഗിക്കാൻ ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നല്കി

ന്യൂഡൽഹി എയിംസിൽ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമേഖലയിൽ തുടക്കം കുറിച്ചു വിവിധ ഗവൺമെൻ് പദ്ധതികൾ സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ ആധുനിക ചികിത്സാ സങ്കേതം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയും ഇതേ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമെന്നും വയോജനങ്ങളുടെ ആരോഗൃപരിരക്ഷ ഉറപ്പൂ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

പാർട്ടി പ്രസിഡന്റ് അമിത് ഷ്ടാ അദ്ധ്യക്ഷൻ വഹിക്കുന്ന യോഗത്തിൽ പാർട്ടിയുടെ ദ്ദേശീയു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുക്കും മൂതിർന്ന പാർട്ടി നേതാക്കളോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദ്യി ഉച്ചയ്ക്ക് ശേഷം യോഗത്തിൽ പങ്കുചേരും അടൽ ബിഹാരി വാജ്പ്പേയ്യുടെ വിയോഗത്തിന് ശേഷം ചേരുന്ന ആദ്യ പാർട്ടി ഉന്നതതല യോഗമാണിത്

സംസ്ഥാന ഗവണ്മെന്റിന്റെ ആവശ്യം അനുഭാവപൂർവം പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു വിദഗ്ധർ അടങ്ങിയ സംഘത്തെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേരളത്തിലേക്കയക്കും ഹ്രസ്വ ദീർഘ അടിയന്തിര എന്നിങ്ങനെ തരംതിരിച്ച് ആരോഗൃരംഗത്ത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നല്കുമെന്നും ശ്രീ

തൊടുപുഴ വയനാട് ഒറ്റപ്പാലം വർക്കല എന്നിവിടങ്ങളിലെ കോളെജുകൾക്ക് ഹൈക്കോടതി നൽകിയ പ്രവേശന അനുമതിയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നത് ഈ കോളെജുകളില്ലെ പ്രവേശനത്തിന് എതിരെ മെഡിക്കൽ കൌൺസിൽ സമർപ്പിച്ച ക്ട്റർജി പരിഗണിക്കവേയാണ് സുപ്രീംകോടതി സ്റ്റേ തുടരുമെന്ന് മ്പ്യക്തമാക്കി

ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനപാദത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിലെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കൊടുവിലാണ് ഇരുരാജ്യങ്ങളും ധാരണയിലെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിപ്രകാരം രാജ്യത്ത് ഒരു ദശലക്ഷം ഡോളർ നിക്ഷേപം നടത്താൻ തയ്യാറായ വോക്സ്വാഗൻ വാഹന നിർമ്മാണ കമ്പനിയുടെ നടപടിയും രാഷ്ട്രപതി സന്തുഷ്ടി പ്രകടിപ്പിച്ചു തന്ത്രപ്രധാനമേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രതിനിധിതല ചർച്ചയ്ക്കൊടുവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ചെക്ക് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് മിലോസ് സെമാനും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു

ഭീകരർക്ക് സുരക്ഷിത താവളമൊരുക്കുന്ന് നടപടി എല്ലാരാജ്യങ്ങളും ഒഴിവാക്കണമെന്ന് സംയുക്ത പ്രീസ്താവന പറയുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യൻ ടീമിൽ രവിചന്ദ്രൻ അശ്വിനേയും ഹർദ്ദിക് പാണ്ഡ്യയേയും ഒഴിവാക്കി പകരം രവീന്ദ്ര ജഡേജയേയും ഹനുമ വിഹാരിയേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ഹൃദയ് ഹസാരികയ്ക്ക് ഇനിയും മികച്ച നേട്ടം കൈവരിക്കാനാകട്ടെ എന്ന് മന്ത്രി ആശംസിച്ചു

വാഹന ഗതാഗതമേഖലയിലെ ഓഹരികളാണ് മിക്ച്ചനേട്ടം കൈവരിച്ചത്

വെങ്കയ്യനായിഡു യാത്രതിരിച്ചു ഞായറാഴ്ച ചിക്കാഗോയിൽ രണ്ടാം അന്താരാഷ്ട്ര ഹിന്ദു സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രത്യേക സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും